ന് സംസ്ഥാന വിദ്യാഭ്യാസമന്ത്രിമാരുടെ യോഗം ചേരും സംസ്ഥാനത്ത് വർഷകാല ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നു എൽ ഡി എഫ് ഗവൺമെന്റിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രകാശനം ചെയ്യും ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്തൃക്ക് മിന്നുന്ന വിജയം ഓസ്ട്രേലിയയെ

കേരളത്തിൽ പുതുതായി ആരിലും നിപ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷ് വർദ്ധൻ അറിയി ച്ചു കൊച്ചിയിലെ സ്ഥകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കൊളേജ് വിദ്യാർത്ഥിയുടെ നില മെച്ചപ്പെട്ടതായും അദ്ദേഹം ന്യൂഡൽഹി യിൽ പറഞ്ഞു രോഗബാധ സംശയിച്ച ഏഴു പേരുടെയും രക്തസാമ്പിളു കൾ പരിശോധിച്ചപ്പോൾ ആരിലും നിപ വൈറസ് സാന്നിധ്യം കണ്ടെത്താ നായില്ല

തൊടുപുഴ മേഖലയിൽ നിന്ന് പന്നികളുടെയും വവ്വാലുകളുടെയും രക്തസാമ്പിൾ ശേഖരിച്ചിട്ടുണ്ട് ഇത് പരിശോധിച്ച ശേ ഷമായിരിക്കും രോഗബാധയുടെ ഉറവിടം കണ്ടെത്തുക

ഡോക്ടർ കസ്തൂരി രംഗൻ കമ്മിറ്റി ശുപാർശ ചെയ്ത നിർദ്ദേശങ്ങളെകുറിച്ച് സംസ്ഥാ നങ്ങളുടെ അഭിപ്രായം തേടിയാണ് കേന്ദ്രമന്ത്രി രമേഷ് പൊക്രിയാൽ ഡൽഹിയിൽ യോഗം വിളിച്ചത്

ഈ കാലയളവിൽ പരമ്പരാഗത മീൻപിടുത്ത യാനങ്ങൾക്കുമാത്രമാണ് മീൻ പിടി ക്കാൻ അനുമതി യന്ത്രവൽകൃത ബോട്ടുകൾക്കും എഞ്ചിൻ ഘടിപ്പിച്ച യാന ങ്ങൾക്കും നിരോധനം ബാധകമാണ് ചെറുമീനുകളെ പിടിക്കരുതെന്ന വിലക്ക് കർശനമായി നടപ്പാക്കും നിരോധന കാലത്ത് ബോട്ടുകൾ കടലിൽ ഇറങ്ങുന്നത് തടയാൻ ഫിഷറീസ് വകുപ്പ് നിരീക്ഷണ സംവിധാനം ഏർപ്പെടു ത്തിയിട്ടുണ്ട് തീരത്ത് മീൻപിടുത്ത യാനങ്ങൾക്ക് ഇന്ധനം നൽകുന്ന പെട്രോൾ പമ്പുകൾ അടയ്ക്കാൻ ജില്ലാ കലക്ടർമാർ നിർദ്ദേശം നൽകി കഴിഞ്ഞു

നീണ്ടകര തങ്കശ്ശേരി അഴീക്കൽ എന്നിവിടങ്ങളിൽ മറൈൻ എൻഫോഴ്സ്മെൻറ് പ്രത്യേക ബോട്ടുകൾ ഏർപ്പെടുത്തി

ശക്തമായ വേലിയേറ്റത്തിൽ കടൽഭിത്തി യില്ലാത്ത പ്രദേശങ്ങൾ ഭാഗിക മായി കടലെടുത്തു

ട്രോളിങ് ബാധകമല്ലാത്ത ചെറുവള്ളങ്ങൾ കടലിൽ പോവരുതെന്ന് ഫിഷറീസ് വകുപ്പ് നിർദേശം നൽകിയിട്ടുണ്ട്

തീരദേശത്ത് അമ്പലപ്പുഴ ചേർത്തല താലൂക്കുകളിൽ കടൽക്ഷോഭവും രൂക്ഷമാണ് കാറ്റിൽ മരം വീണ് ജില്ലയിൽ പലയിടങ്ങളിലും വൈദ്യുതിബന്ധവും തകരാ റിലായി

കടൽ പൊതുവെ പ്രക്ഷു ബ്ധമായിരിക്കും അറബിക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം ചുഴലിക്കാ റ്റായി മാറാൻ സാധ്യതയുണ്ട് ഈ മേഖലയിൽ മീൻപിടിക്കാൻ പോകരു തെന്ന് മത്സ്യബന്ധനയാനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്

മീൻപിടുത്ത ബോട്ടിൽ നിന്ന് ആറു തൊഴിലാളികളെ കോസ്റ്റ് ഗാർഡിന്റെ നേതൃത്വത്തിൽ രക്ഷപ്പെടുത്തി

അപായസന്ദേശം ലഭിച്ചതിനെ തുടർന്ന് സമീപത്തുണ്ടായിരുന്ന ഏഷ്യാ എമറാൾഡ് ദ് എന്ന മർച്ചന്റ് കപ്പലിനോട് തൊഴിലാളികളെ രക്ഷിക്കാൻ കോസ്റ്റ് ഗാർഡ് ആവശ്യപ്പെടുകയായിരുന്നു നാലാം വർഷത്തേക്ക് കടക്കുന്ന് സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രകാ ശനം ചെയ്യും തിരുവനന്തപുരത്ത് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണന് അദ്ദേഹം റിപ്പോർട്ട് കൈമാറും

പ്രകാശനത്തിനുശേഷം ഗവൺമെന്റ് വെബ്സൈറ്റിൽ പ്രോഗ്രസ് റിപ്പോർട്ട് ലഭ്യമാകും ചടങ്ങിനുശേഷം കലാ സന്ധ്യയും ഒരുക്കിയിട്ടുണ്ട്

കേരളാ കോൺഗ്രസ് എം പാർലമെന്ററി പാർട്ടി നേതാവിനെ തെര ഞ്ഞെടുക്കുന്നതിന് സാവകാശം ആവശ്യപ്പെട്ട് പി

ജോസഫ് വിഭാഗം സ്പീക്കർക്ക് കത്ത് നൽകി മോൻസ് ജോസഫ് എം എൽ എയാണ് കത്ത് കൈമാറിയത് ഇതേ ആവശ്യത്തിൽ ജോസ് കെ മാണി വിഭാഗവും സ്പീക്കർക്ക് കത്ത് നൽകും റോഷി അഗസ്റ്റിനെ ഇതിന് ചുമതലപ്പെടുത്തി

കുടുംബാംഗങ്ങൾക്ക് ഗവൺമെന്റ് അർഹമായ ധനസഹായം നൽകുമെന്ന് മന്ത്രി എ

ഇന്നലെ വൈകുന്നേരം മിനിലോറിയും ആംബുലൻസും കൂട്ടിയിടിച്ച് ആംബുലൻസിൽ ഉണ്ടായിരുന്ന പട്ടാമ്പി നെന്മാറ സ്വദേശികളായ എട്ടു പേരാണ് മരിച്ചത് മൃതദേഹങ്ങൾ പൊതുദർശനത്തിനുവെച്ചശേഷം ഇന്ന് സംസ്കരിക്കും

നോർത്ത് പർഗാന ജില്ലയിൽ തൃണമൂൽ കോൺഗ്രസ് അഞ്ച് ബി ജെ പി പ്രവർത്തകരെ കൊല ചെയ്തുവെന്നാരോ പിച്ചാണ് ഹർത്താൽ ബി ജെ പി തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടിയതിനെ തുടർന്ന് എട്ടുപേരാണ് കഴിഞ്ഞ ദിവസം കൊല്ല പ്പെട്ടത് സംഭവത്തെ തുടർന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ ബംഗാൾ ഗവൺമെന്റി നോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യക്ക് മിന്നുന്ന വിജയം

ജയത്തോടെ ഇന്ത്യ പോയന്റ് പട്ടികയിൽ മൂന്നാം സ്ഥാനത്തെത്തി

മൂന്നു മത്സരത്തിലും തോറ്റ ദക്ഷിണാഫ്രിക്ക ആദ്യജയം തേടിയാണ് കളിക്കാനിറങ്ങുന്നത് തദ്ദേശസ്ഥാപനങ്ങളുമായി സഹകരിച്ച് എഞ്ചിനിയറിംഗ് വിദ്യാർത്ഥികൾക്ക് സ്റ്റൈപ്പെന്റോടെ ഒരുവർഷത്തെ ഇന്റേൺഷിപ്പ് ഏർപ്പെ ടുത്തുന്ന പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി ഡോക്ടർ കെ

ജലീൽ അറിയിച്ചു എഞ്ചിനിയറിംഗ് പഠനമേഖലയിൽ കാതലായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഗവൺമെന്റ് ശ്രമിച്ചുവരികയാണ് സംസ്ഥാനത്തെ പല എഞ്ചിനിയറിംഗ് കൊളേജുകളും പോളി ടെക്നിക്കുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ടും പല വിദ്യാർത്ഥികളും അയൽ സംസ്ഥാനങ്ങളിലെ കൊളേജുക ളിലേക്ക് പോവുകയാണെന്നും മന്ത്രി കുറ്റപ്പെടുത്തി വടകര എഞ്ചിനിയ റിംഗ് കോളേജ് വളാഞ്ചേരിയിൽ സംഘടിപ്പിച്ച ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

ങ്ങൾക്കും അതീതമായ പ്രവർത്തനങ്ങൾ നടപ്പാക്കണമെന്ന് മന്ത്രി ഡോക്ടർ കെ

എന്നാൽ മിക്ക സംഘടനകളും രാഷ്ട്രീയത്തിന്റെയും മതത്തിന്റെയും വേലിക്കെട്ടിലാണെന്ന് മന്ത്രി പറഞ്ഞു അങ്ങാടിപ്പുറത്ത് ആക്ട് എന്ന ചാരിറ്റബിൾ ട്രസ്റ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഡോക്ടർ ജലീൽ

തവനൂർ പഞ്ചായത്തിന്റെ അക്കരപ്പച്ച പദ്ധതി ബ്രഹ്മ ശിവക്ഷേത്ര പരിസരത്തെ പുഴയോരത്ത് വൃക്ഷത്ത്തെ നട്ടു മന്ത്രി കെ

ലോക പ്രശസ്ത വൈറസ് ഗവേഷകൻ ഡോക്ടർ കോൻ വാൻ റോംപെ ഇന്ന് കണ്ണൂർ സർവകലാശാല സന്ദർശിക്കും കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ രോഗാണു നിയന്ത്രണകേന്ദ്രം ഡയറക്ടർ കൂടിയാണ് അദ്ദേഹം

നാളെ തലശ്ശേരി ക്യാമ്പസിലും മറ്റന്നാൾ നീലേശ്വരം ക്യാമ്പസിലും അദ്ദേഹം പ്രഭാഷണം നടത്തും

ധനാ ലാബും ഓണത്തിന് ഒരു മുറം പച്ചക്കറി പദ്ധതിയും ഇന്ന് ഉദ്ഘാ ടനം ചെയ്യും കൂവ്വപ്പൊയിൽ കൃഷിഫാമിലെ ഫാം ട്രെയിനിംഗ് സെന്റ റിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി ഉദ്ഘാടനം നിർവ്വ ഹിക്കും

ലിക ജീവനക്കാർക്ക് സ്ഥിരം ജോലി നൽകുമെന്ന ഉറപ്പ് പാലിക്കാത്തത് നീതികേടാണെന്ന് സി

നിയമസഭയിലും ആരോഗ്യ സബ്ജക്ട് കമ്മിറ്റിയിലും ഈ വിഷയം ഉന്നയിക്കും

രണ്ടു മാസത്തിനകം വീടുകളുടെ താക്കോൽദാനം നടത്താനാണ് തീരുമാനം

ചങ്ങരംകുളം മാന്തടത്ത് കെഎസ്ആർടിസി ബസും കാറും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു പുലർച്ചെ ഉണ്ടായ അപകടത്തിൽ കാഞ്ഞിരപ്പള്ളി സ്വദേശി സത്താർ ആണ് മരിച്ചത്

കേരള കാർഷിക സർവകലാശാലാ കലോത്സവം ഇന്ന് തൃശൂ രിൽ ഐ ജി യതീഷ്ചന്ദ്ര ഉദ്ഘാടനം ചെയ്യും